പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗ്ലൂഡ്ക്രി

ഇൻഷുറൻസ് ഭേദഗതില്ബിൽ രാജ്യസഭ പാസ്റ്റാക്കി

സമർപ്പണം ഇന്ന് അവസാനിക്കും സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിൽ

ഇന്ത്യയ്ക്ക് എട്ട് റൺസ് ജയം

കോടിക്കണക്കിന് കർഷകർക്ക് ഈ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നുണ്ട്

എം

വൈ ഉൾപ്പെടെ കഴിഞ്ഞവർഷം സർക്കാർ സ്വീകരിച്ച നടപടികളെ പ്രകീർത്തിച്ച് ഉത്തരാഖണ്ഡ് സ്വദേശി തനിക്കെഴുതിയ കത്തിനെ പരാമർശിച്ചാണ് പ്രധാനമന്ത്രി ഇത് പറഞ്ഞത് കർഷക ക്ഷേമത്തിന് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് ഉദാഹരണമാണ് വിള ഇൻഷുറൻസ് പദ്ധതി വിത്ത് മുതൽ വിപണി വരെ കർഷകർ നേരിടുന്ന എല്ലാ പ്രതിബന്ധങ്ങളും തരണര്ട് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബൃദ്ധ്മാട്ട്ണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ശക്തവും സമൃദ്ധവൂടിസ്ദ്ധയം പര്യാപ്തവുമായ ഇന്ത്യ എന്ന ലക്ഷ്യം നേടാനുള്ള് ശ്രക്തമായ മുന്നേറ്റമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് പ്രിധാനമ്ന്ത്രി പറഞ്ഞു

ജനങ്ങളിൽ നിന്ന് ലഭിക്കു്ന്ന് ഇത്തരം പിന്തുണ രാജ്യത്തിനുവേണ്ടി പ്രവർത്തിക്കാൻ കൂടുതൽ ്ഊർജ്ജം നൽകുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു

നിയമ നടപ്പാക്കുന്നതിന് സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും ഉൾക്കൊള്ളുന്നതാണ് വിജ്ഞാപനം

പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം

ടി വരുമാനം ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു ഈ നയത്തിലൂടെ പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കപ്പെടും പഴക്കം ചെന്നതും മലിനീകരണം ഉണ്ടാക്കുന്നതുമായ വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി ഒഴിവാക്കി ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാനാണ് ഇതുവഴി ലക്ഷ്യമിടുന്നുത്രൂന്നും ശ്രീ

വാഹനങ്ങളുടെ ഇന്ധിന് ക്ഷമത മെച്ചപ്പെടുത്തുക റോഡിന്റെയും വാഹനങ്ങളൂഒട്ടയും ്സുരക്ഷ ഉറപ്പാക്കുക വൃവസായങ്ങൾക്ക് കുറഞ്ഞ് കീർക്കിൽ അസംസ്കൃത വസ്തുക്കളുടെ ലഭൃത ്പൂർദ്ധിപ്പിക്കുക എന്നിവയും നയം നടപ്പിലാക്കുന്നതിലൂടെ സ്മാധ്യമാകുമെന്നും കേന്ദ്ര ഗതാഗത മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇൻഷുറൻസ് കമ്പനികളുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഭേദഗതിയിലൂടെ എടുത്തുമാറ്റും

പുതിയ ഉയർന്ന പരിധി നിശ്ചയിച്ചതിലൂടെ ഇൻഷുറൻസ് കമ്പനികൾക്ക് തങ്ങളുടെ മൂലധന ചെലവുകൾക്കായി പണം കണ്ടെത്താനാകുമെന്ന് ധനമന്ത്രി പറഞ്ഞു പുതിയ ഭേദഗതിയിലൂടെ രാജൃത്ത് സുസ്ഥിര ഇൻഷവറൻസ് സേവനം ഉറപ്പാക്കാനാവുമെന്നും മന്ത്രി പറഞ്ഞു

ക്ഷയരോഗ നിർമ്മാർജ്ജനം സംബന്ധിച്ച യോഗം ന്യൂഡൽഹിയിൽ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

എഫ് യു ഡി എഫ് എൻ

എ മുന്നണികളിലെ നിരവധി പ്രമുഖർ ഇതിനകം പത്രിക സമർപ്പിച്ചു

ഒരു റിപ്പോർട്ട്

പ്രചാരണം ശക്തമാക്കി യുഡിഎഫ് എൻഡിഎ മുന്നണികളും സജീവമായി രംഗത്തുണ്ട് നേമം കഴക്കൂട്ടമടക്കം സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലെ പ്രചാരണം അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്നതോടെ പ്രചാരണം കൊഴുക്കും ഗൃഹ സന്ദർശനത്തിന്റേയും റോഡ് ഷോയുടേയും തിരക്കിലാണ് ഇപ്പോൾ സ്ഥാനാർഥികൾ കടുത്ത ചൂടിലും മണ്ഡലത്തിലെ പ്രധാനയിടങ്ങളിലും വിവിധ ചടങ്ങുകളിലുമെത്തി വോട്ടഭ്യർഥിക്കുകയാണ് സ്ഥാനാർഥികൾ സാമുദായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ കണ്ട് പിന്തുണ ഉറപ്പാക്കലും നടക്കുന്നുണ്ട്

ത്രിപുര മുഖ്യമന്ത്രിയേയും കർണാട്ടുകി ഉപ്പമുഖ്യമന്ത്രിയേയും എത്തിച്ച് ബി ജെ പി പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരുന്നു അടുത്തഘട്ട പ്രചാരണത്തിന്റായി ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രതീക്ഷിക്കുമ്പോൾ ഇടത് വലത് മുന്നണികൾക്കായി സീത്രൂഹൃം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും പ്രചാരണത്തിനെത്തും

ഇന്നലെ ചേർന്ന പാർട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് പേരുകൾ നിശ്ചയിച്ചത് മുൻ കേന്ദ്രമന്ത്രിയും പാർട്ടി വൈസ് പ്രസിഡന്റുമായ മുകുൾ റോയ് കൃഷ്ണ നഗർ ഉത്തറിൽ മത്സരിക്കും

ആരോപണം സംബന്ധിച്ച പൊതു താൽപ്പരൃ ഹർജിയിൽ വാദം കേട്ട ചീഫ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ഉൾപ്പെട്ട ബഞ്ചിന്റേതാണ് നിർദ്ദേശം